സംഭവം പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കും

പോരാട്ടം ന്യൂസിലന്റിനെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിയിൽ

കേന്ദ്രമന്ത്രിസഭയുടെ സാമ്പത്തിക കാര്യ സമിതിയുടേതാണ് തീരുമാനം

ജോവർ ബജ്റ റാഗി ചോളം ചെറുപയർ ഉഴുന്ന് എള്ള് പരുത്തി തുടങ്ങിയ വിളകളുടെ താങ്ങുവിലയിലും വർദ്ധന വരുത്തിയിട്ടുണ്ട്

സ്ഥിതിവിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സാമ്പത്തിക സർവേ നാളെയാണ് രണ്ടാം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്

ഡ്രോൺ ഉയർത്തുന്ന സുരക്ഷാ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റിന് ബോധ്യമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി

പ്രളയത്തെ തുടർന്ന് ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലാണ് അണക്കെട്ടിൽ വിള്ളൽ ഉണ്ടായത് അണക്കെട്ടിന് ചോർച്ചയുണ്ടെന്ന പരാതികൾ ലഭിച്ചിട്ടും അധികൃതർ അവഗണിച്ചുവെന്ന ആരോപണം അന്വേഷിക്കുമെന്ന് ജലവിഭവ മന്ത്രി ഗിരീഷ് മഹാജൻ പറഞ്ഞു ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്നും മന്ത്രി അറിയിച്ചു പ്രളയത്തിൽ ഒലിച്ച് പോയ വീടുകൾ നാല് മാസത്തിനകം പുനർനിർമ്മിക്കുമെന്നും സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് അഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു

ഇന്നലെ ന്യൂഡൽഹിയിൽ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടക സംഘത്തിന്റെ യാത്രയ്ക്ക് കേന്ദ്ര മന്ത്രി മുക്താർ അബ്ബാസ് നഖ്വി പച്ചക്കൊടി കാട്ടി ഈ വർഷം രണ്ട് ലക്ഷം ഇന്ത്യാക്കാരാണ് ഹജ്ജ് തീർത്ഥാടനം നടത്തുന്നതെന്നും ഇത് എക്കാലത്തേക്കാളും കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു

അസംസ്കൃത എണ്ണ വില ഉയരുന്നത് സംബന്ധിച്ച് ശ്രീ

വിഷയത്തിൽ ഒപെക് രാഷ്ട്രങ്ങളുമായി റഷ്യ സന്തുലിതമായ ഇടപെൽ നടത്തണമെന്ന് കേന്ദ്രമന്ത്രി ആവശ്യപ്പെട്ടു ഹൈഡ്രോ കാർബൺ മേഖലയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഊർജ്ജ സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ഇരുനേതാക്കളും ചർച്ച നടത്തിയതായി ഔദ്യോഗിക വാർത്താകുറിപ്പിൽ പറയുന്നു ഹൈഡ്രോ കാർബൺ രംഗത്തെ നിക്ഷേപവും ശ്രീ പ്രദാൻ വിലയിരുത്തി

ഇന്ത്യയിൽ വാതക ഇന്ധന വിതരണ ശൃംഖല വിപുലമാക്കാൻ നിക്ഷേപം നടത്താൻ റഷ്യയിലെ എണ്ണ പ്രകൃതി വാതക കമ്പനികളെ കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രദാൻ ക്ഷണിച്ചു

പുതുവർഷം സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതും ജനാഭിലാഷങ്ങൾ സഫലീകരിക്കുന്നതുമാവട്ടെ എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ ആശംസിച്ചു

ലുക്ഷക്കണക്കിന് പേരാണ് രഥയാത്രയിൽ പങ്കുചേരാൻ പുരിയിലെത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളുമായി ്സുവർണ

ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ഗണ്ഡിച ദേവി ക്ഷേത്രത്തിലേക്ക് നടത്തുന്ന രഥയാത്ര ഈ ഉപാസന മൂർത്തികളുടെ ആണ്ടുതോറുമുള്ള എഴുന്നെള്ളത്തായാണ് സങ്കൽപം

ഭഗവാൻ ജഗന്നാഥന്റെ രഥത്തെ ഭഗവാൻ ബൽദേവ് ദേവി സുഭദ്ര എന്നിവരുടെ രഥങ്ങൾ അനുഗമിക്കും

ഇന്ന് രാവിലെ നടന്ന മംഗള ആരതിയിൽ കേന്ദ്രമന്ത്രി അമിത് ഷായും കുടുംബവും പങ്കെടുത്തു രഥഘോഷയാത്രയ്ക്ക് മുന്നോടിയായി സ്വർണച്ചൂലുകൊണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നുള്ള സഞ്ചാര വീഥി ശുചീകരിക്കുന്ന പഹിന്ദ് എന്ന് ചടങ്ങ് മുഖ്യമന്ത്രി വിജയ് രൂപാനി നിർവഹിച്ചു

ഭഗവദ്ഗീത പാരായണം കീർത്തനാലാപനം ഉൾപ്പെടെ ഒൻമ്പത് ദിവസം നീണ്ടുനിൽക്കുന്ന പരിപാടികളാണ് ധാക്കയിൽ അരങ്ങേറുന്നത്

ജഗന്നാഥ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ മാനവ രാശിയ്ക്ക് ശാന്തിയും സമാധാനവും സമൃദ്ധിയും വരുത്തട്ടെ എന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സന്ദേശത്തിൽ പറഞ്ഞു ന്യൂസ്ഡെസ്ക് ആകാശവാണി

പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് തുക നൽകുന്നത്

കൊൽക്കത്ത നിലയത്തിൽ ജനപ്രിയ പാശ്ചാത്യ സംഗീത പരിപാടിയുടെ അവതാരകനായിരുന്ന ഹൽദർ പിൽക്കാലത്ത് ഡൽഹി നിലയത്തിൽ ഇംഗ്ലീഷ് വാർത്താ അവതാരനായി ശ്രദ്ധേയനായി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അനുശോചിച്ചു

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് അഫ്ഗാനിസ്ഥാൻ വെസ്റ്റ് ഇൻഡീസിനിനെ നേരിടും ലീഡ്സിൽ വൈകിട്ട് മൂന്നിനാണ് മത്സരം നേരത്തേ സെമി ഉറപ്പാക്കിയ ഇന്ത്യ നാളെ അവസാന സന്നാഹ മത്സരത്തിൽ ശ്രീലങ്കയുമായി ഏറ്റുമുട്ടും

ജമാ അത്ത് ഉദ് ദവ നേതാവും സഹായികളും ഭീകര പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയിരുന്നതായും അവർ അറിയിച്ചു